തിരുവനന്തപുരം കൊല്ലും ജില്ലകളിൽ ശക്തമായ മഴ വയനാട് പാലക്കാട് മലപ്പുറം ഉൾപ്പെടെ ജില്ല കളിൽ ഇന്നും നാളെയും മഴയുണ്ടാകുമെന്ന് കാലാ വസ്ഥാ മുന്നറിയിപ്പ് ബസ് ചാർജ്ജ് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ

ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ പുനസ്ഥാപിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി

എൽ ഫുട്ബോളിൽ ഇന്ന് ബംങ്കലൂരു ജംഷഡ്പൂർ മത്സരം

ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിപിണറായി വിജ യൻ നാളെ വിളിച്ചുചേർത്ത ചർച്ചയിൽനിന്ന് തന്ത്രി കുടുംബവും പന്തളം രാജകുടുംബവും പിന്മാറി റിവ്യൂ ഹർജി നൽകുന്ന കാര്യത്തിൽ തീരുമാ നമായശേഷം മതി ചർച്ച എന്ന് കണ്ഠരര് മോഹന്ന് സ്വകാരൃ ചാനലി നോട് പറഞ്ഞു റിവ്യൂ ഹർജി നൽകുന്നതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്ന തെന്ന് പന്തളം രാജകുടുംബാംഗം ശശികുമാരവർമ്മ വ്യക്തമാക്കി

രാജകുടുംബത്തിന്റെ നിർവാഹക സമിതിയിൽ വിഷയം ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്ത്രികുടുംബം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാവാം മുഖ്യമന്ത്രിയുമായി ശബരിമല പ്രശ്നം ചർച്ച് ചെയ്യേണ്ടെന്ന് തീരുമാനി ച്ചതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായ്പ്പെട്ടു തന്ത്രികുടുംബ ത്തിന്റെ നിലപാടിനെ സ്ഥാഗതം ചെയ്യുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയത്തിൽ ഗവൺമെന്റിന് റിവ്യുഹർജി നൽകേണ്ട ആവശ്യമില്ലെന്നും അതാത് കാലത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമെന്നും മന്ത്രി വിശദീകരിച്ചു പന്തളം രാജകുടുംബം ശബരിമല ചർച്ചയിൽനിന്ന് പിന്മാറിയതിൽ തെറ്റില്ലെന്ന് യോഗക്ഷേമസഭ മുൻപ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ട തിരിപ്പാട് പറഞ്ഞു വിധി നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചുപറഞ്ഞശേഷമാണ് ഗവൺമെന്റ് ചർച്ചു നടത്തുന്നത് ഇങ്ങിനെയൊരു ചർച്ചയ്ക്ക് എന്തുപ്രസക്തിയാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു ശബരിമല് വിഷയത്തിൽ എൻ

നാളെ പുനപരിശോധന ഹരജി നൽകുമെന്ന് റിപ്പോർട്ട് ശബരിമലയിൽ പ്രായഭേദമില്ലാതെ മുഴു വൻ സ്ത്രീകൾക്കും ദർശനം അനുവദിച്ച സുപ്രീംകോടതി ഭരണഘടന ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ഹരജി നൽകുന്നത് കേസിൽ എൻ എസ് എസ് നേരത്തെ കക്ഷി ചേർന്നിരുന്നു ശബരിമല വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിലപാടിന് സി

കേന്ദ്രകമ്മിറ്റി യോഗം ഡൽഹി യിൽ ഇന്നും തുടരും അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഖ്യ സാധൃതകളും തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി ആഹാനം ചെയ്ത പകൽ ഹർത്താൽ സമാധനാപരമായി പുരോഗമിക്കുന്നു ആറൻമുളയിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബുവിനെ പോലീസ് മർദിച്ചതിൽ പ്രതി ഷേധിച്ചാണ് ഹർത്താൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസി ഡന്റിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഇന്നലെയായിരുന്നു പോലീസ് മർദനം എറണാകുളം തൃപ്പൂണിത്തുറയിലും കോട്ടയം തിരുനക്കരയിലും വിശ്വാസികൾ ശബരിമല സ്ത്രീപ്രവേശനത്തിനെതിരെ പ്രതിഷേധപ്രകട നങ്ങൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പലയിടത്തും ശക്തമായമഴ തുട രുകയാണ് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് വയനാട് ജില്ലക ളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്

വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ഒമാൻ തീരത്തേക്ക് പോയേക്കുമെന്നാണ് കാലാവസ്ഥാ സൂചന ബസ് ചാർജ്ജ് ഇപ്പോൾ വർദ്ധിപ്പിക്കാനാവില്ലെന്ന് മന്ത്രി എ

ശശീ ന്ദ്രൻ കോഴിക്കോട്ട് അറിയിച്ചു ചാർജ്ജ് വർദ്ധന ആവശ്യപ്പെട്ട് സ്ഥകാ രൃബസുടമകൾ സമരപ്രഖ്യാപനം നടത്തിയതിനോട് യോജിക്കാനാവി ല്ലെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങൾക്കുമേൽ അധികഭാരം അടിച്ചേൽപ്പി ക്കാൻ ഗവൺമെന്റ് തയ്യാറല്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി ഗവൺ മെന്റിനെ ചാർജ്ജ് വർദ്ധനയ്ക്ക് നിർബന്ധിതമാക്കാൻ ബസുടമകൾ തന്ത്രം ആവിഷ്കരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പൊതു ഗതാ ഗത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ എടുത്തിട്ടുണ്ട്

പ്രളയ പുനരധിവാസവും പുനർനിർമ്മാണവും ചർച്ച ചെയ്യാൻ മുഖൃ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേരും

സാങ്കേതിക പ്രശ്നങ്ങൾമൂലം നാലായിരത്തോളം കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ ബാക്കിയുണ്ട് പ്രളയത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായവിതരണം ഏറെക്കുറെ പൂർത്തി യായതായാണ് റിപ്പോർട്ട്

ഡൽഹിയിൽ കേന്ദ്രമന്ത്രി യുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർഥാടകരുടെ യാത്ര അടുത്ത വർഷം മുതൽ കരിപ്പൂരിൽ നിന്നാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും സി ഫൈസി അറിയിച്ചു

താജിക്കി സ്ഥാൻ പ്രസിഡന്റ് എമമോലി റഹ്മാൻ പ്രധാനമന്ത്രി ഖഹിർ റസുൽസോദ തുട്ടങ്ങിയവരുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതു സംബന്ധിച്ച് ഇരു രാഷ്ട്രനേതാക്കളും തമ്മിൽ ചർച്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു താജിക്കിസ്ഥാനിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും

എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗുളൂരു എഫ് സി ജംഷഡ്പൂ രിനെ നേരിടും

നിലവിലെ ജേതാക്കളായ ചെന്നൈയെ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബംഗലൂരു കളത്തിലിറങ്ങുന്നത് ജംഷഡ്പൂർ മുംബൈയ്ക്കെതിരായ ആദ്യമത്സരത്തിൽ വിജയിച്ചിരുന്നു

ഉച്ചക്ക് ഒന്നര മുതൽ മിർപൂർ ഷേർ ഇ ബംഗ്ല സ് റ്റേഡിയത്തിലാണ് മത്സരം ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ ഫൈനൽ പ്രവേശം നേടിയത് ആദ്യ കിരീടമാണ് ശ്രീലങ്കയുടെ ലക്ഷ്യം പതിറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും സമൂഹത്തിന്റെയും സമുദായത്തി ന്റെയും സ്മൃതികളിൽ നിന്ന് മാഞ്ഞുപോകാത്ത ചിത്രമാണ് സിഎച്ച് മു ഹമ്മദ് കോയയുടെതെന്ന് മുസ്തിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സിഎച്ച് അനുസ്മരണ പരിപാടി ഉദ് ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഗുണനിലവാരത്തിനും പ്രവർത്തന മികവിനും കോഴിക്കോട് സ്ത്രീക ളുടെയും കുട്ടികളുടേയും ആശുപത്രി വയനാട് നൂൽപ്പുഴ എഫ് എച്ച്

എന്നാൽ അഞ്ച് വർഷത്തേക്ക് ഗ്രാന്റുകൾ ലഭിക്കും ഭൂമിയുടെ ന്യായവില പുനർനിർണയിക്കുന്നതിന് കണ്ണൂർ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ജില്ലയിൽ ന്യായവില പുനർനിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതിനെത്തുടർന്നാണ് ലാന്റ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്നുള്ള സ്പപെഷ്യൽ ടീം പരിശീലനം നൽകിയത്

പ്രാദേശിക ദുരന്ത നിവാരണ സേന രൂപീകരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല പ്രഖ്യാപനം നാളെ നടക്കും പ്രാദേശികമായി ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങാൻ യോജിക്കുന്ന ശാസ്ത്രീയ പരിശീ ലനം നേടിയവരുടെ സംഘമാണ് രൂപീകരിക്കുന്നത്

പരിപാടി യുടെ ഉദ്ഘാടനം മന്ത്രി ടി

രാമകൃഷ്ണൻ നാളെ നിർവ്വഹിക്കും സംസ്ഥാന നിയമസഭാ പരിസ്ഥിതി സമിതി വ്യാഴാഴ്ച വയനാട്ടിലും വെള്ളിയാഴ്ച പാലക്കാടും തെളിവെടുക്കും കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാ ഉദ്യോഗ സ്ഥർ പരിസ്ഥിതി പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് തെളി വെടുക്കും തുടർന്ന് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളും പ്രളയബാ ധിത പ്രദേശങ്ങളും സന്ദർശിക്കും പൂജ ദീപാവലി എന്നിവയോടനുബന്ധിച്ച് പ്രതിവാര തൽക്കാൽ ട്രെയി നുകൾ അനുവദിച്ചതായി ദക്ഷിണ റെയിൽവെ അറിയിച്ചു യശ്വന്ത്പൂ രിൽനിന്നും എറണാകുളത്തേക്കും തിരിച്ചും ബുധനാഴ്ച മുതലാണ് ട്രെയിൻ സർവ്വീസ് നടത്തുക

ശേഖ രിക്കുന്ന പുസ്തകങ്ങൾ പ്രളയക്കെടുതിയിൽ പുസ്തകങ്ങൾ നശിച്ച വാ യനശാലകൾക്കു നൽകാനായി ജില്ലാ ലൈബ്രറി കൌൺസിലിന് കൈമാ റും റേഷൻ കടകളുടെ പ്രവർത്തനസമയം പുനക്രമീകരിച്ചതായ വാർത്ത കൾ അടിസ്ഥാന രഹിതമാണെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ തിരുവ നന്തപുരത്ത് അറിയിച്ചു ഇത്തരത്തിൽ യാതൊരു തീരുമാനവും പൊതു വിതരണ വകുപ്പോ ഗവൺമെന്റോ കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി